പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും

നാല് വിക്കറ്റുകൾ നഷ്ടമായി

വെർച്ച്വലായി ചേരുന്ന കൺവെൻഷൻ രാവിലെ പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും സ്വയം പര്യാപ്ത ഇന്ത്യക്ക് സംഭാവനയർപ്പിക്കുകയെന്നതാണ് ഇത്തവണത്തെ പ്രമേയം മൂന്ന് ഘട്ടമായി നടത്തുന്ന പ്രവാസി സമ്മേളനത്തിൽ സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയാണ് മുഖ്യാതിഥി ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് രണ്ട് പ്ലീനറി സമ്മേളനങ്ങളും നടക്കും ഭാരതത്തിന്റെ സ്വയം പര്യാപ്തയിൽ പ്രവാസി ഇന്ത്യാക്കാരുടെ പങ്ക് എന്ന ആദ്യ പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയും സംസാരിക്കും കോവിഡിന് ശേഷമുള്ള വെല്ലുവിളികൾ സംബന്ധിച്ച രണ്ടാമത്തെ സമ്മേളനത്തെയും ഇവർ അഭിസംബോധന ചെയ്യും സമാപന സമ്മേളനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും

വിദേശ ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാനും വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെ ആദരിക്കുന്നതിനുമാണ് വിദേശകാര്യ മന്ത്രാലയം എല്ലാ വർഷവും പ്രവാസി ഭാരതീയ ദിവസ് സംഘടിപ്പിക്കുന്നത്

നൈപുണ്യ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി യുവ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസി കൌശൽ വികാസ് യോജന പദ്ധതി വിദേശത്ത് തൊഴിൽ തേടുന്ന ഇന്ത്യൻ യുവാക്കളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും വി മുരളീധരൻ പറഞ്ഞു ദര കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി മറ്റന്നാൾ വൈകീട്ട് ചർച്ച നടത്തും

സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിനും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനും ഡി ജി സി

അടിയന്തര ഉപയോഗ അനുമതി നൽകിയതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ വാക്സിൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ ഹർഷവർധൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ദ്ദേ കോവിഡാനന്തര സാമ്പത്തിക അജണ്ടകൾ ക്രമീകരിക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തി സാമ്പത്തിക രംഗത്ത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ശക്തമായ തിരിച്ചുവരവുണ്ടാകുമെന്ന് നിതി ആയോഗ് സംഘടിപ്പിച്ച ചർച്ച വിലയിരുത്തി രാജ്യത്തിന്റെ വികസന അജണ്ടകൾ തയ്യാറാക്കാൻ ചർച്ച പ്രയോജനപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് ആഗോള വാണിജ്യ മേഖലയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ദേശീയ വികസന അജണ്ട സജ്ജമാക്കുന്നതിൽ അത്തരം ചർച്ചകളുടെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തു

വാക്സിനേഷന് മുന്നോടിയായി രണ്ടാം ഘട്ട ഡ്രൈറൺ ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി

ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ആശാ വർക്കർമാർ എന്നിവരാണ് ആദ്യ ഘട്ടത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുക

ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ

ദേദ ഡൽഹിയിൽ പ്രക്ഷോഭ രംഗത്തുള്ള കർഷകരുമായി കേന്ദ്ര ഗവൺമെന്റ് ചർച്ച തുടരും

ഇന്നലെ കർഷകരുമായി എട്ടാംവട്ട ചർച്ച നടത്തിയെങ്കിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദര കൊച്ചി നഗരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ നിർവഹിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

ദേദ മൂന്നര വർഷം നീണ്ട ഉപരോധത്തിന് ശേഷം യു

ഇ യും ഖത്തറും കര കടൽ വ്യോമ അതിർത്തികൾ ഇന്ന് തുറക്കും

എ

എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഹൈദരാബാദ് എഫ്

ദേദ ഐ ലീഗിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി ചെന്നൈ സിറ്റി എഫ്

വൈകീട്ട് ഏഴിന് കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിലാണ് മത്സരം കോവിഡ് കാരണം രണ്ടു ഘട്ടമായാണ് ഇത്തവണ മത്സരം നടക്കുന്നത് ദ്ദേ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നടൻ ടോവിനോ തോമസ് സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ പദവി ഏറ്റെടുക്കും

ദേദ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ സംസ്ഥാനത്തെ ആദ്യ ഹരിത ജയിലായി ഇന്ന് പ്രഖ്യാപിക്കും ജയിൽ പരിസരം മാലിന്യമുക്തമാക്കുകയും കൃഷിയിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തതോടെയാണ് സ്പെഷ്യൽ സബ് ജയിലിന് ഹരിത ജയിൽ പദവി ലഭിക്കുന്നത് ഹരിത ജയിൽ പ്രഖ്യാപനവും ജയിലിനകത്തെ മത്സ്യ കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനവും രാവിലെ മന്ത്രി ഇ

ദ്ദേ വയനാട് ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകൾ ഹരിതവത്ക്കരിക്കുന്നതിന് ഹരിത ഓഡിറ്റിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ദ്ദേ വയനാട് ജില്ലയിൽ നിലവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കോഴി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു പ്രത്യേക രോഗ ലക്ഷണങ്ങൾ ഇല്ലാതെ പക്ഷികൾ കൂട്ടത്തോടെ പെട്ടെന്ന് ചത്തൊടുങ്ങുന്നതാണ് പക്ഷിപ്പനിയുടെ പ്രധാന ലക്ഷണം ഇത്തരത്തിലുളള സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ജില്ലാ ജന്തു ജന്യ രോഗ നിയന്ത്രണ കാര്യാലയത്തിൽ അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ദേദ കളമശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ ഹൌസ് സർജന്മാരും വിദ്യാർത്ഥികളും നടത്തി വന്ന സമരം എറണാകുളം ജില്ലാ കലക്ടർ എസ് സുഹാസിന്റെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചു കഴിഞ്ഞ മാർച്ച് മുതൽ സമ്പൂർണ കോവിഡ് ആശുപത്രിയായതിനാൽ പഠന സൌകര്യം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം